നാളെ വയനാട്ടിൽ നാമനിർദേശ പത്രിക സമർപ്പിക്കും

വിജയരാഘവന് ജാഗ്രത കുറവുണ്ടായതായി സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ എം

പത്രികയിൽ മുഴുവൻ പൊള്ളയായ വാഗ്ദാനങ്ങളാണെന്ന് അരു ണാചൽ പ്രദേശിലെ പാസിഘട്ടിൽ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു ഇതൊരു പ്രകടന പത്രികയല്ലെന്നും അദ്ദേഹം പറഞ്ഞു വോട്ടിന് വേണ്ടി കോൺഗ്രസ് കർഷകരെ വിഡ്ഢികളാക്കുകയാണെന്ന് മോദി കുറ്റപ്പെടുത്തി ബി ജെ പി ഗവൺമെന്റ് എക്കാലത്തും കർഷകരോടൊപ്പമായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു തന്റെ ഗവ ഒരിക്കലും കർഷകരെ വഞ്ചി ക്കുകയെന്ന പാപം ചെയ്തിട്ടില്ലെന്നും വിത്ത് മുതൽ വിപണി വരെ സംവിധാനം കൊണ്ടുവന്നത് തന്റെ ഗവൺമെന്റാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നാമനിർദേശ പത്രിക സമർപ്പിക്കാൻ ഇന്ന് വൈകീട്ട് കോഴിക്കോട്ടെത്തും

ഇന്ന് കോഴിക്കോട്ട് തങ്ങുന്ന രാഹുൽഗാന്ധി നാളെ രാവിലെ ഹെലികോപ്റ്റർ മാർഗം വയനാട്ടിലേക്ക് പോകും രാവിലെ പത്തോടെ എസ്

ജിയുടെ നേതൃത്വ ത്തിൽ വൻസുരക്ഷയാണ് കൽപറ്റയിലും പരിസര പ്രദേശങ്ങ ളിലും ഒരുക്കിയിരിക്കുന്നത്

എറണാകുളം പ്രസ് ക്ലബ്ബിൽ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനദ്രോഹ നടപടികൾ നയമാക്കിയ നരേന്ദ്ര മോദിയെ പുറത്താക്കുകയും മതനിരപേക്ഷത സംരക്ഷിക്കുന്ന ബദൽ ഗവൺമെന്റ് രൂപീകരിക്കുകയുമാണ് ഇടതുപക്ഷത്തിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു തെരഞ്ഞെടുപ്പിനു മുമ്പ് സഖ്യമുണ്ടാക്കുന്ന രീതി ദേശീയ രാഷ്ട്രീയത്തിലില്ലെന്നും നുണകളാൽ കെട്ടിപ്പൊക്കിയ കൊട്ടാരമാണ് ബി

പി ഗവൺമെന്റെന്നും യെച്ചൂരി പറഞ്ഞു കേരളത്തിൽ ബിജെപി ചിത്രത്തിലില്ല എൽഡിഎഫും യുഡിഎഫും തമ്മിൽ നേരിട്ടുള്ള മത്സരമാണ് ഇവിടെ നടക്കുന്നതെന്നും രാജ്യം മുഴുവൻ ബിജെപിയെ തോൽപ്പിക്കാൻ ഒറ്റക്കെട്ടാവുമ്പോൾ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ആലത്തൂരിലെ യുഡിഎഫ് സ്ഥാനാർത്ഥി ക്കെതിരായ ഇടതു മുന്നണി കൺവീനർ എ വിജയരാഘവന്റെ അധിക്ഷേപം സംബന്ധിച്ച ചോദ്യത്തിന് സംസ്ഥാന നേതൃത്വം ഇക്കാര്യം പരിശോധി ക്കുമെന്ന് യെച്ചൂരി പ്രതികരിച്ചു സ്ത്രീകളെ അവഹേളിക്കുന്നത് സിപിഐഎമ്മിന്റെ രീതിയല്ലെന്നും വിജയ രാഘവന് പിഴവ് പറ്റിയിട്ടുണ്ടോയെന്ന് അന്വേഷിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കേന്ദ്രത്തിൽ മതേതര ജനാധിപത്യ ഗവൺമെന്റ് രൂപീകരി ക്കാൻ കോൺഗ്രസ് നടത്തുന്ന നീക്കത്തിനൊപ്പം എല്ലാവരും ഒറ്റക്കെട്ടായി അണിനിരക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു ദക്ഷിണേന്ത്യയോട് നരേന്ദ്രമോദി ഗവൺമെന്റ് കാണിക്കുന്ന അവഗണന മനോഭാവത്തിന് എതിരെയാണ് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതെന്ന് അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു ജനങ്ങളെ മതങ്ങളുടെ പേരിൽ വേർതിരിക്കുന്ന നർന്ദ്രമോദിയുടെ നിലപാടുകൾ ജനാധിപതൃത്തിന് എതിരാണെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി നരേന്ദ്രമോദിക്കെതിരെ രാജ്യത്ത് ഉയർത്തിക്കാട്ടാൻ കഴിയുന്ന ഏക നേ താ വാണ് രാഹുൽഗാന്ധി യെന്ന് അദ്ദേഹം പറ ഞ്ഞു ബിജെപിക്കെതിരായ ശക്തമായ പ്രതിരോധനിര ദേശീയ നേതൃത്വത്തിൽ ഉയർന്ന് വരേണ്ടതുണ്ടെന്നും ചെന്നിത്തല അഭി പ്രായപ്പെട്ടു രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വും ദേശീയ പ്രസക്തിയും ഇടതുപക്ഷം മനസ്സിലാക്കണം ആദ്യമായാണ് കേരളത്തിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയോ ദേശീയ നേതാവോ മത്സരിക്കുന്ന തെന്നും അദ്ദേഹം പറഞ്ഞു

ഇട തുപക്ഷം വസ്തുതകൾ മറച്ചു വെച്ചാണ് രാഹുലിനെതിരെ നീക്കം നടത്തുന്നതെന്നും ഇത് ദൌർഭാഗ്യകരമാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ആലത്തൂരിലെ യുഡിഎഫ് സ്ഥാനാർത്ഥിയെ അധിക്ഷേപിച്ച ഇടതു മുന്നണി കൺവീനർ എ വിജയരാഘവന് ജാഗ്രത കുറവുണ്ടായതായി സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ എം

സ്ത്രീകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആരായാലും ജാഗ്രത പാലിക്കണമെന്നും ജോസ്ഫൈൻ തിരുവനന്തപുരത്ത് പറഞ്ഞു ലോ ഓഫീസറോട് കമ്മീഷൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഇതു കിട്ടിയാൽ ഉടൻ നടപടി സ്വീകരിക്കുമെന്നും അവർ പറഞ്ഞു സംഭവത്തിൽ പക്ഷപാതപരമായ രീതിയിൽ പെരുമാറില്ലെന്നും ജോസഫൈൻ പറഞ്ഞു ആലത്തൂരിലെ യുഡിഎഫ് സ്ഥാനാർത്ഥി ക്കെതിരെ ഇടതു മുന്നണി കൺവീനർ എ

ഡി ജി പി ലോക്നാഥ് ബെഹ്റയാണ് അന്വേഷിക്കാൻ നിർദേശം നൽകിയ ത് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നല്കിയ പരാതിയി ലാണ് നടപടി നിലവിൽ തിരൂർ ഡിവൈഎസ്പി ബിജു ഭാസ്ക റാണ് കേസ് അന്വേഷിക്കുന്നത്

കഴിഞ്ഞ ദിവസം പൊന്നാനിയിലെ പൊതുയോഗ ത്തിൽ പങ്കെടുക്കവെയാണ് എ വിജയരാഘവൻ യുഡിഎഫ് സ്ഥാനാർത്ഥിക്കെതിരെ മോശം പരാമർശം നടത്തിയത്

മുന്നണി പ്രവർത്തകരോടൊപ്പം കൽപ്പറ്റ കല ക്ട്രേറ്റിൽ എത്തിയാണ് അദ്ദേഹം പത്രിക നൽകിയത് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരനും കൊല്ലത്ത് എൽഡിഎഫ് സ്ഥാനാർത്ഥി കെ എൻ ബാലഗോപാലും പത്രിക നൽകി പത്തനംതിട്ടയിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയും ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ കെ സുരേന്ദ്രൻ വീണ്ടും നാമനിർദേശ പത്രിക നൽകും സുരേന്ദ്രനെതിരെ കൂടുതൽ ക്രിമി നൽ കേസുകൾ ഉള്ളതായി ഗവ ഹൈക്കോടതിയെ അറിയിച്ച സാഹചരൃത്തിലാണ് വീണ്ടും പത്രിക സമർപ്പിക്കുന്നത്

മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികളിൽ മിക്കവരും ഇതിനകം പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു ശേഷിക്കുന്നവർ ഇന്നും നാളെയുമായി പത്രിക നൽകും സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് തുടങ്ങി

വയനാട്ടിലെ പ്രചാരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ യോഗത്തിൽ മുഖ്യ ചർച്ചയായേക്കും വോട്ടർ ബോധവത്കരണ പരിപാടിയായ സ്വീപിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തെരഞ്ഞെടുപ്പ് ഗീതം പുറത്തിറക്കി ഗാനത്തിന്റെ ഡിവിഡി പ്രകാശനം തിരുവനന്തപുരത്ത് ഗവർണർ പി

സംസ്ഥാനത്ത് നിന്നുള്ള ആദ്യ ഹജ്ജ് തീർത്ഥാടക സംഘം ജൂലൈ നാലിന് കരിപ്പൂർ വിമാനത്താവള ത്തിൽ നിന്ന് പുറപ്പെടും ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർ കിംഗ്സുമായി ഏറ്റുമുട്ടും വൈകീട്ട് എട്ടിന് മുംബൈ വാങ്കഡേ സ്റ്റേഡിയത്തിലാണ് മത്സരം ഇന്നലെ ബാംഗ്ലൂർ റോയൽ ചാലഞ്ചേഴ്സിന് എതിരെ രാജസ്ഥാൻ റോയൽസ് ഏഴ് വിക്കറ്റിന് വിജയിച്ചിരുന്നു

പലിശ നിരക്കുകളിൽ മാറ്റം വരുത്താൻ സാധൃതയുണ്ടെന്നാണ് സൂചന

ഇന്നലെ മുംബൈയിൽ തുടങ്ങിയ ആർബിഐയുടെ വായ്പാ അവലോകന സമിതി യോഗം തുടരുകയാണ്

ഓരോ ദിവസം കഴിയുംതോറും സാധ്യ തകൾ കുറഞ്ഞു വരികയാണെന്നും ഡോക്ടർമാർ അറിയിച്ചു അണുബാധയില്ലാത്തിനാൽ വെന്റി ലേറ്ററിന്റെ സഹായത്തോടെ ജീവൻ നിലനിർത്താ മെന്ന പ്രതീക്ഷയിലാണ് ഡോക്ടർമാർ അതിനിടെ ഏഴു വയസ്സുകാരനെ മർദ്ദിച്ച അരൂൺ ആനന്ദിനെ മുട്ടം മജിസ്ട്രേറ്റ് കോടതി പൊലീസ് കസ്റ്റഡിയിൽ വിട്ടു കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ ദിലീപിനെതിരെ ഉടൻ കുറ്റം ചുമത്തില്ലെന്ന് സംസ്ഥാന ഗവൺമെന്റ് സുപ്രീംകോടതിയെ അറിയിച്ചു സുപീംകോടതി യിലെ ഹർജി തീർപ്പാക്കും വരെ കുറ്റം ചുമത്തരുതെന്ന ദിലീപിന്റെ ആവശ്യം പരിഗണിച്ചാണ് നടപടി ഹർജി അടുത്ത മാസം ഒന്നിന് കോടതി വീണ്ടും പരിഗണിക്കും സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും താപനിലയിൽ വർധ നയുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തിരുവനന്ത പുരത്ത് അറിയിച്ചു ആലപ്പുഴ പാലക്കാട് ജില്ലകളിൽ ശരാശരി താപനില മൂന്നു മുതൽ നാല് വരെ ഡിഗ്രി സെൽഷ്യസ് വർധി ക്കും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം എറ ണാകുളം ഇടുക്കി തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ രണ്ടുമുതൽ മൂന്നു വരെ ഡിഗ്രി സെൽഷ്യസാണ് വർധിക്കുക ഈ സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറി യിപ്പ് നൽകി

ചീഫ് സെക്രട്ടറിക്കും കോഴിക്കോട് പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർക്കുമാണ് കമ്മീ ഷൻ ജുഡീഷ്യൽ അംഗം പി മോഹനദാസ് നിർദ്ദേശം നൽകിയ ത്

ഡി ടൈപ്പിസ്റ്റ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട പി

സജിനി നൽകിയ പരാതിയിലാണ് നട പടി

ഒരു ട്രെയിൻ വഴിതിരിച്ചുവിടുകയും മൂന്ന് ടെയിനുകളുടെ സമയക്രമത്തിൽ മാറ്റംവരുത്തുകയും ചെയ്തിട്ടുണ്ട് ഞായറാഴ്ചയും ബുധനാഴ്ചയും തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടേണ്ട തിരുവനന്തപുരം സെൻട്രൽ ചെന്നൈ സെൻട്രൽ ദൈവാര എക്സ്പ്രസ് മറ്റന്നാളും ചൊവ്വാഴ്ചയും ചെന്നൈയിൽ നിന്ന് പുറപ്പെടേണ്ട ചെന്നൈ സെൻട്രൽ തിരുവനന്തപുരം ദ്വൈവാര എക്സ്പ്രസ് എന്നിവയാണ് റദ്ദാക്കിയത്